വിദ്യാഭ്യാസ കോൺക്ലേവിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അഭിസംബോധന ചെയ്യും

കേരളത്തിൽ മഴ ശക്തമായി തുടരുന്നു

ഓറഞ്ച് അലർട്ട്

ശിക്ഷാപർവിന്റെ ഭാഗമായി കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് നേതൃത്വം നൽകുന്ന ദിദിന കോൺക്ലേവിന് ഇന്നലെയാണ് തുടക്കമായത്

സ്കൂൾ വിദ്യാഭ്യാസത്തിനും ഉന്നത വിദ്യാഭ്യാസത്തിനും ഒരുപോലെ ബാധകമാകുന്നതാണ് ദേശീയ വിദ്യാഭ്യാസ നയം

മോസ്കോയിൽ ന്നടക്കുന്ന ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിക്കിടെ വിദേശകാര്യമ്പ്രന്തി എസ്

അതിർത്തിയിലെ സംഘർഷ്ം ലഘൂകരിക്കണമെന്ന് ഇരുനേതാക്കളും അഭിപ്രായമുന്നയിച്ചു

അതിർത്തിയിൽ സമാധാനവും ശാന്തതയും സ്ഥിരമായി പാലിക്കാൻ ഇരുനേതാക്കളും നടത്തിയ കൂടിക്കാഴ്ചയിൽ ധാരണയായി

കൂടുതൽ വിവരങ്ങളുമായി അഞ്ജന

രണ്ടര ലക്ഷത്തിലേറെ പേർക്കാണ് ഇതുവരെ മഹാരാഷ്ട്രയിൽ രോഗം സ്ഥിരീകരിച്ചത്

സിംഗപ്പൂർ ക്വാലലംപൂർ അബുദാബി മസ്കത്ത് കുവൈറ്റ് എന്നിവിടങ്ങളിൽ നിന്നും പ്രവാസികൾ എത്തും

കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ നടത്തിപ്പ് അദ്ദേഹം വിലയിരുത്തി

ന്യൂനപക്ഷ വിഭാഗങ്ങൾ നടത്തുന്ന നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ശ്രീ

വിദ്യാർത്ഥികൾക്കുള്ള ഹോസ്റ്റലിന്റെ തറക്കല്ലിടലും അദ്ദേഹം നിർവ്വഹിച്ചു

രാജ്യതലസ്ഥാനമായ ഡൽഹിയും സിക്കിമും ചേർന്ന് ഏക് ഭാരത് ശ്രേഷ്ഠ് ഭാരതിന്റെ കീഴിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിക്കും

രോഗബാധിതരുടെ എണ്ണത്തിൽ രണ്ടാം സ്ഥാനത്താണ് ഇന്ത്യ

മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ടും ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് ജില്ലകളിൽ ്യെല്ലോ അലർട്ടുമാണ്

മത്സ്യതൊഴിലാളികൾ കടലിൽ പ്പോകരുതെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്

ചെറുത്തുനിൽപ്പിന് ആയുധങ്ങൾ ആവശ്യമില്ലെന്ന് ചൂണ്ടിക്കാട്ടി അഹിംസയുടെ ് മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകിയ പോരാട്ടമായിരുന്നു ഉപ്പുസത്യാഗ്രഹം

സുരക്ഷാപ്രശ്നങ്ങൾ കണക്കിലെടുത്താണ് അമേരിക്കയുടെ നടപടി

ചൈനയുടെ സാമ്പത്തിക സുരക്ഷാ മേഖലകളെ ശാക്തീകരിക്കുന്നതിനാണ് ചൈനീസ് വിദ്യാർത്ഥികളുടെ അമേരിക്കൻ കടന്നുകയറ്റമെന്ന് അമേരിക്ക ആരോപിച്ചു അതേസമയം അമേരിക്കയുടേത് വംശീയ വിവേചനമാണെന്ന് ചൈന ആരോപിച്ചു

ഇത് സംബന്ധിച്ച് വിവിധ അഭിപ്രായങ്ങൾ ഉയർന്ന സാഹചര്യത്തിലാണ് സർക്കാർ യോഗ്ലം വിളിച്ചത്

മന്ത്രി തോമസ് ഐസകിന് കോവിഡ് സ്ഥിരീകരിച്ചതോടെയാണ് മുഖ്യമന്ത്രി സ്വയം നിരീക്ഷണത്തിൽ കഴിഞ്ഞത്

എം എ പ്രതിനിധി നടത്തിയ പ്രസ്താവനയിൽ ഹോമിയോപ്പതി ഡോക്ടർമാർ ഇന്ന് പ്രതിഷേധദിനം ആചരിക്കും പ്രതിഷേധ ബാഡ്ജ് ധരിച്ചെത്തുന്ന ഡോക്ടർമാർ സർക്കാർ ഹോമിയോ ആശുപത്രികളിലെ ഒ

ജന നന്മയ്ക്കായി എല്ലാ വൈദ്യശാസ്ത്രങ്ങളും ഒത്തൊരുമിച്ചു പ്രവർത്തിക്കണമെന്ന ആരോഗ്യമന്ത്രിയുടെ താൽപ്പര്യത്തെ ഏറെ വിലമതിക്കുന്നു കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഹോമിയോപ്പതി വിഭാഗം കൂടുതൽ സജീവമാകുമെന്നും സംഘടന അറിയിച്ചു

എന്നാൽ പതിനാറാം സ്റ്റ്സ്ട് എലീസ് മെർത്തേൻസിനെ നേരിട്ടുള്ള സെറ്റുകൾക്ക് പരാജ്യ്പ്പെടുത്തിയാണ് അസരങ്ക അവസാന നാലിൽ ഇടംപിടിച്ചത്

വൈകിട്ട് മൂന്ന് മണിക്കാണ് പരിപാടി

കസ്റ്റഡിയിലെടുത്തവരെ എക്സൈസ് അധികൃതർ ബത്തേരി പോലീസിന് കൈമാറി

സംസ്ഥാന സാമൂഹ്യ ക്ഷേമ വകുപ്പ് മന്ത്രി പ്രമീള റാണി ബ്രഹ്മ ഗോഹട്ടിയിൽ പരിപാടി ഉദ് ഘാടനം ചെയ്തു

തികച്ചും വിപ്ലവകരമായ ഒരു തീരുമാനമാണ് ഇതെന്നും സിഖ് സമുദായ ത്തോടുള്ള സർക്കാരിന്റെ സേവന മനോഭാവമാണ് ഇതോടെ ഒരിക്കൽ കൂടി വെളിവാകുന്നതെന്നും അദ്ദേഹം ട്വിറ്ററിൽ കുറിച്ചു

എ നിയമത്തിന് കീഴിൽ ഫണ്ട് സ്വീകരിക്കുന്നതിനാണ് ക്ഷേത്രത്തിന് സർക്കാർ അനുമതി നൽകിയത്

പി എം പിയുമായ പരേഷ് റാവലിനെ നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാ്മ്യുടെ പുതിയ അധ്യക്ഷനായി നിയമിച്ചു രാഷ്ട്രപതി റാം നാഥ് കോവിന്കുആണ് അദേഹത്തെ തൽസ്ഥാനത്തേക്കു നിയമിച്ചുത്